എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്പേ ഓഫിൽ

ടെട മനുഷ്യരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിത സാഹചര്യത്തെ ജാഗ്രതയോടെ നേരിടാൻ സമൂഹം തയ്യാറാകണമെന്ന് നോവലിസ്റ്റ് യു

ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കും നിർമ്മാണം പൂർത്തീകരിച്ച കൊല്ലം ശൂരനാട് വടക്ക് കോഴിക്കോട് കീഴരിയൂർ കണ്ണൂർ പടുവിലായി ചിത്താരി കാസർകോട് ചെറുവത്തൂർ എന്നീ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെയും കേളകം റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിക്കും

രുട ഇടുക്കി ജില്ലയിൽ ഇന്ന് രണ്ടായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യും

തിരുവനന്തപുരം ആറ് കൊല്ലം എട്ട് ആലപ്പുഴ മൂന്ന് പത്തനംതിട്ട രണ്ട് കോട്ടയം രണ്ട് ഇടുക്കി ഒന്ന് എറണാകുളം രണ്ട് തൃശ്ശൂർ ഒൻമ്പത് പാലക്കാട് ഒന്ന് മലപ്പുറം അഞ്ച് കോഴിക്കോട് ഒന്ന് വയനാട് നാല് കണ്ണൂർ രണ്ട് എന്നിങ്ങനെയാണ് സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്

ഉടമകൾക്ക് തുക കൈമാറുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

ആതവനാട് മാറാക്കരകുറ്റിപ്പുറം വില്ലേജുകളിലെ നഷ്ടപരിഹാരവും ഈ മാസം ലഭ്യമാക്കും ടെട വയനാട് പടിഞ്ഞാറത്തറയിൽ പൊലീസ് വെടിവെയ്പിൽ മരിച്ച മാവോയിസ്റ്റിനെ തിരിച്ചറിഞ്ഞു തമിഴ്നാട് തേനി ജില്ലയിലെ പെരിയകുളം അണ്ണാനഗർ കോളനി സ്വദേശി വേൽമുരുകനാണ് മരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളജ് മോർച്ചറിയിലേക്ക് മാറ്റി ഇന്നലെ രാവിലെ തെരച്ചിൽ നടത്തുകയായിരുന്ന പൊലിസ് സംഘത്തിന് നേരെ മാവോവാദി സംഘം ആക്രമിച്ചപ്പോൾ ആത്മരക്ഷാർഥം നടത്തിയ വെടിവെയ്പിലാണ് വേൽമുരുകൻ മരിച്ചതെന്ന് പൊലീസ് അറിയിച്ചു ആയുധധാരികളായ അഞ്ചുപേർ സംഘത്തിലു ണ്ടായിരുന്നുവെന്നും കൊല്ലപ്പെട്ട വേൽമുരുകനെതിരെ കേളകം താമരശേരി എടക്കര വൈത്തിരി ഉൾപ്പെടെ എട്ട് പൊലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ടെന്നും പൊലീസ് പറഞ്ഞു ഇയാളിൽ നിന്ന് ഒരു റൈഫിൾ കണ്ടെത്തിയതായും പൊലീസ് അറിയിച്ചു

ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ മണ്ഡലത്തിലും മണിപ്പൂരിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ശനിയാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും ചൊവ്വാഴ്ചയാണ് വോട്ടണ്ണൽ

ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇലക്ടറൽ വോട്ടിൽ ജോ ബൈഡനാണ് നേരിയ മുന്നേറ്റം

ഇന്ത്യാനയിലും കെൻഡകിലും ഡൊണാൾഡ് ട്രംപും ജോർജ്ജിയയിലും വെർമ്മണ്ടിലും ജോ ബൈഡനും മുന്നേറുന്നതായാണ് റിപ്പോർട്ട് രുടെ സാഹിത്യ രചനകൾക്ക് സൌകര്യമുള്ള സംസ്ഥാനത്തെ ആദ്യ എഴുത്തു ഗ്രാമത്തിന്റെ നിർമാണം പാലക്കാട്ടെ തസ്രാക്കിൽ ഇന്ന് ആരംഭിക്കും വൈകീട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എഴുത്തുകാരുടെ ഗ്രാമത്തിനും മന്ത്രി എ

ബാലൻ വാസസ്ഥലങ്ങളുടെ നിർമ്മാണത്തിനും തറക്കല്ലിടും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേഓഫിൽ പ്രവേശിച്ചു മുംബൈക്കും ഡൽഹിക്കും പിന്നാലെ മൂന്നാം സ്ഥാനക്കാരായാണ് ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് പ്രവേശം ഇതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി നാളെ ദുബായിൽ നടക്കുന്ന ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസാണ് മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളി ടെട തദ്ദേശ കോർപ്പറേഷനുകൾ മുനിസിപ്പൽ കൌൺസിലുകൾ ത്രിതല പഞ്ചായത്തുകൾ എന്നിവയിലെ അദ്ധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം നിശ്ചയിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടിക വർഗ സ്ത്രീ പട്ടിക ജാതി പട്ടിക വർഗ്ഗം എന്നീ സംവരണ സ്ഥാനങ്ങൾ ആണ് നിശ്ചയിച്ചത് വിജ്ഞാപനങ്ങൾ ഇന്നു മുതൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാകും ടെട പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ നേത്വത്വത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ പിണറായിയിൽ നിർമിച്ച കൺവെൻഷൻ സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിന്റെ അധീനതയിൽ കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നത്

രെട കേരളത്തിന്റെ നാളികേര മാർക്കറ്റ് എന്ന നിലയിലേക്ക് കോഴിക്കോട് വേങ്ങേരി മാർക്കറ്റിനെ നാളികേര ട്രേഡിംഗ് ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം ലഭിച്ചതായി മന്ത്രി വി

രുടെ ടൂറിസത്തെ തിരികെ കൊണ്ടുവരുന്നതിന് ശ്രമങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി കടകംപള്ളിസുരേന്ദ്രൻ പറഞ്ഞു

രെ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക നിലവാരത്തോടെയാണ് സംസ്ഥാനത്തെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതെന്ന് മന്ത്രി ജി

ആയൂർ അഞ്ചൽ പുനലൂർ സംസ്ഥാന പാതയുടെ പുനരുദ്ധാരണവും അഞ്ചൽ ബൈപ്പാസിന്റെ നിർമാണോദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രുടെ സാധ്യമായ മേഖലകളിലെല്ലാം പൊതുവിതരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പി

ഇടുക്കി കട്ടപ്പന അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ച രണ്ട് മാവേലി സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം